അയോധ്യ ഭൂമിതർക്കകേസ് ഇന്ന് സുപ്രീംകോടതി പരിഗ ണിക്കും തൃശൂർപൂരത്തിൽ തെച്ചിക്കോട്ട്കാവ് രാമചന്ദ്രനെ എഴുന്ന ളളിക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടാൻ ധാരണ യായി കേസ് ഇന്ന് ഹൈക്കോട്ടതിയിൽ

പ്ലസ് വൺ പ്രിവേശനത്തിന് ഓൺലൈൻ അപേക്ഷകൾ ഇന്നുമുതൽ സ്വീകരിക്കും ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം കാളിഫയറിൽ ഇന്ന് ചെന്നൈ സൂപ്പർകിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും

പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തുടങ്ങിയവര ടക്കം പ്രമുഖ നേതാക്കൾ പ്രചാകണരംഗത്തുണ്ട് ഇന്ന് പഞ്ചാ ബിലും പശ്ചിമബംഗാളിലും ഹരിയാനയിലും പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുക്കും കോൺഗ്രസും സഖ്യകക്ഷികളായ സമാജ്വാദി ബഹു ജൻസമാജ് പാർട്ടികളുമാണ് വോട്ട്ബാങ്ക് രാഷ്ട്രീയം നടപ്പാക്കു ന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പ്രതിപക്ഷപാർട്ടികൾ വോട്ടു ചോദിക്കുക യാണെന്നും അദ്ദേഹം ഉത്തർപ്രദേശിലെ അസംഘട്ടിൽ കുറ്റപ്പെടു ത്തി കേന്ദ്രത്തിൽ ശക്തവും സുസ്ഥിരവുമായ ഗവ എന്ന ലക്ഷ്യ ത്തോടെ പുതിയ വോട്ടർമാർ സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദേശിച്ചു രാഹുൽഗാന്ധിയുടെ പൌരത്വപ്രശ്നം തെരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപി ആവർത്തിക്കുന്നത് പരാജയഭീതികൊണ്ടാണെന്ന് കോൺഗ്രസ് വിലയിരുത്തി

തെരെഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മറു പടി നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് ഇന്നു കൂടി സമയം നൽകി മധ്യപ്രദേശ്ചിലെ ഷാദോളിൽ നടത്തിയ പ്രസം ഗത്തിന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വിശദീ കരണം ഇന്നലെ നൽകാനായിരുന്നു കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്ന ത് അയോധ്യാഭൂമി ്തർക്കകേസ് ഇന്ന് സുപ്രീംകോടതി പരിഗ ണിക്കും ചീഫ്ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാബെ ഞ്ചാണ് കേസ് പ്രിഗണിക്കുന്നത് കേസ് രമ്യമായി പരിഹരിക്കാൻ സാധ്യത തേടി മൂന്നംഗ മധ്യസ്ഥ സംഘത്തെ കോടതി നേരത്തെ നിയോഗിച്ചിരുന്നു പൊലീസുകാരുടെ തപാൽബാലറ്റ് ക്രമക്കേട് കേസിൽ ആരോ പണവിധേയനായ കമാന്റോ വൈശാഖിനെ സസ്പെന്റ് ചെയ്തു പൊലീസുകാരുടെ പോസ്റ്റൽ വോട്ടുകൾ സമാഹരിക്കാൻ വൈശാഖ് നേരിട്ട് ഇടപെട്ടെന്ന തെളിവുകളുടെ അടിസ്ഥാനത്തി ലാണ് നടപടി ഇയാൾക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടു ണ്ട്

ഹൈക്കോ ടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ജില്ലാതല നിരീക്ഷണസമിതിക്ക് ഇടപെടാനാകുമോ എന്ന കാര്യത്തിലായിരിക്കും നിയമോപദേശം തേടുന്നത് മന്ത്രിമാരായ കടകംപളളി സുരേന്ദ്രൻ വി സുനിൽകു മാർ തുടങ്ങിയവർ ആന ഉടമകളുമായി രണ്ട് മണിക്കൂറോളം ചർച്ച നടത്തി കേരള സംസ്കാരത്തിന്റെ ഭാഗമായ പൂരത്തിന്റെ പ്രൌഡിയും പൊലിമയും നഷ്ടമാവാതെ ആഘോഷിക്കാൻ ഗവ പിന്തുണനൽകുമെന്ന് മന്ത്രിമാർ അറിയിച്ചു

വിധിക്കുശേഷം ആനയുടമ കളുടെ യോഗം തൃശൂരിൽ ചേരും

ഇന്നലെ അർദ്ധരാത്രി യോടെ കൊച്ചിയിൽ നിന്നും ആലുവ എടയാറിലെ സി ആർ ജി മെറ്റലേഴ്സിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കാർ തടഞ്ഞു നിർത്തി സ്വർണം ബലമായി കൊണ്ടുപോവുകയായിരുന്നു ആക്രമത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കേറ്റു മുൻകൂട്ടി വിവര് അറിയുന്നവരാണ് കാറിനെ പിന്തുടർന്ന് സ്വർണം കവർന്നതെന്ന് സംശയിക്കുന്നതായി പൊലീസ് പറഞ്ഞു സംഭവ ത്തിൽ സിആർജി മെറ്റലേഴ്സിലെ ജീവനക്കാരെ പൊലീസ് ചോദ്യം ചെയ്തു

മീൻപിടുത്തക്കാർ ഈ സമയത്ത് കട ലിൽ പോകരുതെന്ന് നിർദേശം നൽകിയിട്ടുണ്ട്

ഹയർസെക്കൻ്ററി വൊക്കേഷണൽ ഹയർസെക്കൻ്ററി പ്തസ് വൺ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷകൾ ഇന്നുമുതൽ സ്വീകരിക്കും സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബുകളും ഇന്റർനെ റ്റും ഇതിനായി ലഭ്യമാക്കും സ്കൂളുകളിൽ ഹെൽപ്ഡെസ്കുക ളും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ടാം കാളിഫയറിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിട്ടും

റെയിൽവേ പൊലീസിന്റെ പ്രത്യേക സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുട്ടർന്ന് പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് വയനാട് മുഖപ്പെനാട് പഞ്ചായത്തിൽ രണ്ട് അസം തൊഴിലാളികൾക്ക് കോളറ ബാധ സ്ഥിരീകരിച്ചതിനെതുടർന്ന് നെടുങ്കരണയിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യ സുരക്ഷാ പരിശോധന് കർശനമാക്കി ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കു ക ഉദ്യേശത്തോടെയാണ് എന്ന ആരോഗ്യവകുപ്പിലേയും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലേയും ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധനയും ബോധവൽ ക്കരണവും നടത്തിയത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ബോധമില്ലാതെ കിടക്കുന്ന അച്ഛനെ ഉണർത്താൻ കിടക്കക്കരികിലിരുന്നു ഉറക്കെ വായിച്ച് പഠിച്ച് എസ്എസ്എൽസിക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കോഴിക്കോട് പ്രോവിഡൻസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയും സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് കമാന്റുമായ ആര്യയെ മന്ത്രിമാരായ ടി പി രാമകൃഷ്ണനും എകെ ശശീന്ദ്രനും സന്ദർശിച്ചു ആര്യയുടെ അച്ഛൻ രാജന്റെ തുടർ ചികിൽസ ഗവൺമെന്റ് ഉറപ്പ് വരുത്തുമെന്നും കുടുംബത്തിന്റെ സംരക്ഷണം ഗവൺമെന്റ് ചുമതലയാണെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ തുടർ ചികിൽസക്ക് സൌകര്യമേർപ്പെടുത്താൻ മന്ത്രി നിർദേശം നല്കി

കോഴിക്കോട് നീലേശ്വരം ഗവ ഹയർസെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ റസിയ ഡെപ്യൂട്ടീ ചീഫ് പി കെ ഫൈസൽ അഡീഷണൽ ഡെപ്യൂട്ടി നിഷാദ് വി മുഹമ്മദ് എന്നിവരെയാണ് സ്പെൻഡ് ചെയ്തത്

ചോക്കോഡോസ് എന്ന പേരിൽ സിറിഞ്ചിൽ നിറച്ച് വിറ്റിരുന്ന ചോക്ലേറ്റ് കൊല്ലം ജില്ലയിൽ നിരോധിച്ചു ആശുപത്രികൾ ലാബുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന സിറിഞ്ചുകളിൽ ചോക്ലേറ്റ് നിറയ്ക്കുന്ന സാഹചര്യവും അതുവഴിയുള്ള ആരോഗ്യ ഭീഷണിയും കണക്കിലെടുത്താണ് നടപടി

തീരദേശത്ത് അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിപിഐ എം ലീഗ് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ സാന്നിധൃത്തിൽ പ്രാദേശിക നേതാക്കളുടെ യോഗം വിളിച്ചത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഫിഷ്ടിംഗ്ട് ഹാർബറിൽ ലീഗൽ മെട്രോളജി വകുപ്പും പോലീസും മീന്നൽ പരിശോധന നടത്തി

മത്സ്യം തൂക്കുന്നതിന് സ്പ്രിംഗ്ദ് ത്രാസുകളും തൂക്ക വ്യത്യാസം വരുത്താവുന്ന ത്രാസുകളൂം ഉപയോഗിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി എറണാകുളം അഗ്രിഹ്യോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ കൊച്ചിൻ മാംഗോഷോ ഇന്ന് മറ്റെൻഡ്രൈവ് മൈതാനിയിൽ ആരം ഭിക്കും വിവിധ സംസ്ഥാനങ്ങളിലെയും വിദേശങ്ങളിലെയും മാമ്പ ഴങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഷോയിൽ ഉണ്ടായിരിക്കും

പരിസ്ഥിതി സൌഹൃദ മാതൃകാ പദ്ധതിക്ക് ഇടുക്കിയിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് തുടക്കമിടും അടിമാലി ടൌണിലും പ്രിസര പ്രദേശങ്ങളിലും റോഡരികിൽ മരങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളും നട്ടുപരിപാലിച്ച് പച്ചത്തുരത്ത് സൃഷ്ടിക്കുന്നതാണ് പദ്ധതി മോട്ടോർവാഹനവകുപ്പിന്റെ തലശ്ശേരി ഇരിട്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിലും വാഹനപരിശോധനാ മൈതാനത്തും വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി

കണ്ണൂരിൽ സ്ഥാപിക്കുന്ന സിജിഎച്ച്എസ് വെൽനസ് സെന്റ റിന് സ്ഥലം കണ്ടെത്താൻ ഉന്നതതല കേന്ദ്രസംഘം പരിശോധന നടത്തി സിജിഎച്ച്എസ് ഉപദേശകൻ ഡോ ഡി സി ജോഷിയുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് സന്ദർശനം നടത്തിയത് കണ്ണൂർ ആകാശവാണിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന കാർട്ടേഴ്സ് കെട്ടിടം ഇതി നായി പരിശോധിച്ചു

കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എജുക്കേഷൻ സെന്ററിലെ കോഴ് ഡയറക്ടറും വിവരാവകാശ് സ് ഡോ പ്രസീതയ്ക്കാണ് പിഴശിക്ഷ കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവധിച്ച അമൃത എക ്സ്പ്രസിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പൌരാവലിയുടെയും നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി